കേന്ദ്രഗവൺമെന്റ് നിയമഭേദഗതി കൊണ്ടുവരണമെന്ന് പന്തളം രാജകുടുംബം സ്ത്രീപ്രവേശന വിഷയത്തിൽ ദേവസം ബോർഡ് വിളിച്ച ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യം ഇന്ന് തീരുമാനിക്കും എൻ ഡി എയുടെ ശബരിമല സംരക്ഷണയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും കൃത്യമായി നികുതി ഒടുക്കുന്ന സത്യസന്ധ്രായ നികുതിദായകർക്ക് പൊതു സേവനങ്ങൾ ലഘൂകരിച്ചുനൽകുന്ന പുതിയ നികുതിനയം കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കി വരുന്നു ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ എറണാകുളം ഓവറോൾ

ശബരിമലയിൽ വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയമഭേദഗതി കൊണ്ടുവർണമെന്ന് പന്തളം രാജകുടുംബ മേധാവി കേരളവർമ്മ രാജ ആവശൃപ്പെട്ടു സുപ്രീം കോടതി വിധി ഭക്തർക്ക് എതിരാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വിധിക്കെതിരെ പന്തളം രാജകുടുംബം സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാഹർജി നൽകിയിട്ടുണ്ടെ ന്നും ഇതിലെ തീരുമാനം വിലയിരുത്തി അനുയോജ്യ നടപടികൾ കൈക്കൊള്ളുമെ ന്നും അദ്ദേഹം അറിയിച്ചു അയ്യപ്പധർമ്മ സംരക്ഷണസമിതി ജന്തർമന്ദറിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് കേരളവർമ്മരാജ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസികളുടെ വികാരം മാനിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ ദേവസ്വം ബോർഡ് നാളെ നടത്തുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കുമെന്ന് പന്തളം കൊട്ടാരം നിർവ്വാഹകസംഘം പ്രസിഡന്റ് ശശികുമാര വർമ്മ അറിയിച്ചു തന്ത്രികുടുംബം അടക്കം സംഘടനകളുമായി കൂടിയാലോചിച്ച് മറുപടി നൽകാ നാണ് കൊട്ടാരം നിർവ്വാഹകസംഘം വാർഷിക പൊതുയോഗം തീരുമാനിച്ചതെന്ന് അദ്ദേഹം പന്തളത്ത് അറിയിച്ചു മുൻവിധിയോടെ ചർച്ച നടത്തിയിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു

സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട മുൻനിലപാടിൽ ഉറച്ചുനിൽക്കുന്നതായി തന്ത്രി കണ്ഠരര് രാജീവര് വ്യക്തമാക്കി ദേവസം ബോർഡ് സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകണമെന്നാണ് തന്ത്രികുടുംബത്തിന്റെ ആവശ്യം അതിനിടെ നാളെ രാവിലെ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്ന ചർച്ച യാതൊരു മുൻവിധി യോടും കൂടിയല്ലെന്ന് തിരുവിതാംകൂർ ദേവസം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു എല്ലാവശങ്ങളും പരിശോധിച്ച് അനുയോ ജ്യമായ തീരുമാനമെടുക്കുമെന്നും പത്മകുമാർ പറഞ്ഞു

രാവിലെ പട്ടത്തു നിന്ന് ആരംഭിക്കുന്ന യാത്ര സെക്രട്ടേറി യറ്റിനു മുന്നിലാണ് സമാപിക്കുക ബി ജെ പി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു സമാപനയാത്രയിൽ പങ്കെടുക്കും മറ്റന്നാൾ പത്തനംതിട്ടയിൽ ബി ജെ പി വിശ്വാസി സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ സംഗമം പ്രതിജ്ഞയെടുക്കും ് ശബരിമലയിലെ ആചാരങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് അന്താരാഷ്ട്രീയ ഹിന്ദുപരിഷത്ത് പ്രസിഡന്റ് പ്രവീൺ തൊഗാഡിയ ആവശ്യപ്പെട്ടു

എച്ച് പി പന്തളത്തുനിന്ന് തിരുവനന്തപുരത്തെ ദേവസം ബോർഡ് ആസ്ഥാനത്തേക്ക് നടത്തിയ നാലുദിവസത്തെ പ്രതിഷേധ മാർച്ചിന്റെ സമാപനസമ്മേളനം തിരുവനന്ത പുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേവസ്വം ബോർഡിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയമം കൊണ്ടു വരണമെന്നും തൊഗാഡിയ ആവശ്യപ്പെട്ടു ശബരിമലയെ തകർക്കാൻ ഇറങ്ങുന്നവർക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തുവരണമെന്ന് കെ

പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു പത്തനംതിട്ടയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ശബരിമലയെ അയോധ്യയെപ്പോലെ യുദ്ധഭൂമിയാക്കാൻ അനുവദിക്കി ല്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആലപ്പുഴയിൽ പറഞ്ഞു സമരങ്ങളിൽ കൊടിപിടിച്ച് രാഷ്ട്രീയം കലർത്തരുതെന്ന പന്തളം രാജകുടുംബത്തിന്റെ അഭിപ്രായം കോൺഗ്രസ് അംഗീകരിക്കുന്നു ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പമാണ് ഈ വിഷയത്തിൽ കേരള ഗവൺമെന്റിന് കൈകഴുകാ നാവില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ് ് ് ് ് ് ശബരിമലയിൽ യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നാമജപഘോഷയാത്രകൾ മുഖ്യമന്ത്രിക്കെതിരായ തെറിവിളിഘോഷ യാത്രകളായി മാറുന്നുവെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി

സി പി ഐ എം പെരിയ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ

ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്ന് കേരള പുലയ മഹാസഭ സംസ്ഥാന സെക്രട്ടറി പുന്നല ശ്രീകുമാർ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു ഇപ്പോൾ നടക്കുന്ന നാമജപയാത്രകൾ കേരളത്തിലുണ്ടായ നവോത്ഥാനത്തെ പിന്നോട്ടടിക്കാ നാണെന്നും അദ്ദേഹം പറഞ്ഞു ് കൃത്യമായി നികുതി ഒടുക്കുന്ന സത്യസന്ധരായ നികുതിദായകർക്ക് പൊതുസേവനങ്ങൾ ലഘൂകരിച്ചു നൽകുന്ന പുതിയ നികുതിനയം കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കി വരുന്നു വിമാനത്താവളങ്ങൾ റെയിൽവെ സ്റ്റേഷനുകൾ ഹൈവേകളിലെ ടോൾ സെന്ററുകൾ എന്നിവിടങ്ങളിൽ മുൻഗണന ലഭിക്കുന്ന വിധമാണ് നയം തയ്യാറാക്കുന്നത് ആദായനികുതി വകുപ്പിന്റെ നയരൂപീകരണ സമിതിയായ കേന്ദ്ര പ്രത്യക്ഷനികുതി ബോർഡിന് കീഴിലെ സമിതിയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്നത് സത്യസന്ധരായ നികുതിദായകർക്ക് പ്രാധാന്യവും മുൻഗണനയും നൽകണമെന്ന് കഴിഞ്ഞ വർഷം നികുതി ഓഫീസർമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയിരുന്നു

നാളെ വൈകിട്ട് പുസ്തകപൂജ ആരംഭിക്കുന്നതിനാലാണ് അവധി പകരം മറ്റൊരു ദിവസം പ്രവൃത്തിദിനമായിരിക്കുമെന്നും എന്നാണെന്ന് പിന്നീട് അറിയിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എ ഷാജഹാൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം കാഴ്ച വൈകല്യമുള്ളവരുടെ സഞ്ചാരസ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനം ആചരിക്കുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും വൈറ്റ് കെയിൻ റാലിയും സെമിനാറും സമ്മേളനവും നടക്കും സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂർ ജില്ലയിലെ പുത്തൂരിൽ രാവിലെ കെ രാജൻ എം എൽ എ നിർവ്വഹിക്കും കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കോഴിക്കോട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈറ്റ് കെയിൻ റാലി വൈകിട്ട് മുതലക്കുളം മൈതാനത്ത് നടക്കും ഗവൺമെന്റ് ജോലികൾക്കുള്ള നിയമനങ്ങളിൽ മൂന്നു ശതമാനം കാഴ്ചവൈകല്യമുള്ളവർക്ക് സംവരണം ചെയ്യണമെന്ന കോടതിവിധി നടപ്പാക്കണ മെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ആവശ്യപ്പെട്ടു ലോക വൈറ്റ് കെയിൻ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നടന്ന സമ്മേളനത്തിലാണ് ആവശ്യമു യർന്നത്

തിരുവനന്തപുരത്ത് സമാപിച്ച സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ എറണാകുളം ഓവറോൾ ചാമ്പ്യന്മാരായി

ഹോക്കിയിൽ ഫൈനലിൽ കടന്ന ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ മെഡൽ ഉറപ്പിച്ചു മൂന്ന് സ്വർണ്ണവും അഞ്ച് വെള്ളിയുമടക്കം എട്ട് മെഡലുകളുമായി എട്ടാം സ്ഥാനത്താണ് ഇന്ത്യ

എ ഐ സി സി ആഹ്വാനമനുസരിച്ച് കെ പി സി സി നടത്തുന്ന രണ്ടാം ഘട്ട സമരത്തിന്റെ ഭാഗമായാണ് ധർണ നടത്തുന്നതെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് എം പി കൊച്ചിയിൽ അറിയിച്ചു

ത്തിന്റെ ഭാഗമായി ഇന്ന് പൂലർച്ചെ നടന്ന ശയനപ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു രാവിലെ നടക്കുന്ന ദിവ്യബലി അർപ്പിക്കൽ ചടങ്ങിന് കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗ്ഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകും

കാസർകോട് ജാമിഅ സഅദിയ്യ അറബിയ പ്രിൻസിപ്പാളും പ്രമുഖ പണ്ഡിതനുമായ എ

അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ അന്തരിച്ചു

അല്പം മുമ്പ് നടന്ന അപകടത്തിൽ ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുക്കാൻ ശ്രമം തുടരുകയാണ്

ഡി എ വിട്ടതിൽ അത്ഭുതമില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ്പി

സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന നിലപാടായിരുന്നു ജാനുവി ന്റേതെന്നും എൻ ഡി എ നടത്തുന്ന സമരത്തിൽ ജാനു പങ്കെടുത്തിരുന്നില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു മുന്നണി വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിനാൽ ജാനുവുമായി ഇനിയൊരു ചർച്ചയ്ക്കും സാധ്യതയില്ലെന്നും പാർട്ടി മുന്നണി വിടുമെന്ന സൂചന നേരത്തെ തന്നെ കിട്ടിയിരുന്നുവെന്നും ശ്രീധരൻപിള്ള അറിയിച്ചു

നിലനിർത്തി ഈ സീസണിലെ രണ്ടാമത്തെ ചാർട്ടേഡ് വിമാനം കൊച്ചിയിൽ എത്തി ഫ്രാൻസിൽ നിന്ന് എത്തിയ വിനോദസഞ്ചാരികൾക്ക് വിനോദ സഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഊഷ്മളമായ വരവേല്പ് നൽകി

ഉണർവ്വേകി ആഡംബര വിനോദ സഞ്ചാര കപ്പൽ കൊച്ചിയിലെത്തി

സംഘം ആലപ്പുഴ വിഴിഞ്ഞം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തും

ലുബാൻ ചുഴലിക്കാറ്റിന്റെ ഫലമായി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ തീരപ്രദേശങ്ങളിലും ലക്ഷദ്വീപിലും തീരത്തോടുചേർന്ന് വേലിയേറ്റ സമയങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധൃതയുണ്ടെന്നും കാലാവസ്ഥാവകുപ്പ് മുന്നറിയിപ്പ് നൽകി

രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ ഇല്ലാതാക്കു ന്നതിന് സോഷ്യലിസ്റ്റുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണ മെന്ന് ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് എം

ശ്രേയാംസ്കുമാർ ആവശ്യപ്പെട്ടു ലോക് താന്ത്രിക് ജനതാദൾ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കൺവൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു അദ്ദേഹം

പള്ളിപ്രവേശനവുമായി കൂട്ടിക്കലർ ത്തുന്നത് ദുരുദ്ദേശ്യപരമാണെന്ന് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി